പാടില്ലെന്നും രാജ്യം ഒപ്പമുണ്ടെന്നും ശാസ്ത്രജ്ഞരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർബിറ്റർ സുരക്ഷിതവും പ്രവർത്ത്നക്ഷമവുമാണെന്ന് ഐ

ആർ ഒ

പിൻവലിക്കാനുള്ള സമയ്പിരിധി ഇന്ന് അവസാനിക്കും

തകർന്ന റോഡുകളു്ടെ അറ്റകുറ്റപ്പണിവേഗത്തിലാക്കാൻ മന്ത്രി ജി സുധാകരൻ നിർദ്ദേശം നൽകി

ദിവസമായിരിക്കുമെന്ന് ധനമന്ത്രി ടി

തോമസ് ഐസക്

ഡാനിൽ മെദ്വദേവും ഏറ്റുമുട്ടും

എസ് ആർ ഒ ശാസ്ത്രജ്ഞർക്ക് ആത്മവിശ്വാസമേകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

എന്നാൽ ഓർബിറ്റർ സുരക്ഷിതമാണെന്നും ചന്ദ്രനു ചുറ്റും ഭ്രമണം ചെയ്യുകയാണെന്നും ഐ

ഒ ശാസ്ത്രജ്ഞരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ചന്ദ്രയാൻ രണ്ടിലെ ലാൻഡർ ലക്ഷ്യം കാണാത്ത സംഭവത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ലക്ഷ്യത്തിൽനിന്നും പിന്നോട്ടുപോകരുതെന്നും ഇസ്റോയിലെ ശാസ്ത്രജ്ഞരോട് പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ സാങ്കേതികവിദൃകൾ കണ്ടുപിടിക്കാൻ ഇത് പ്രചോദനം നൽകുമെന്നും ഭാവിയിലേക്കുള്ള വിജയത്തെ നിർണയിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഒരു പുതിയ പ്രഭാതവും തിളക്കുമുള്ള നാളെയും ഉടൻ ഉണ്ടാകുമെന്നും ശ്രീ

ഒ അറിയിക്കുകയായിരുന്നു

എന്നാൽ ഓർബിറ്റർ സുരക്ഷിതവും പ്രവർത്തനക്ഷമവുമാണ്

ദൌത്യം തിളങ്ങുന്ന വിജയത്തിലെത്തിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയും ആത്മവിശാസ്ത്തോടെ മുന്നോട്ട് പോകാനും കൂടുതൽ ഉയരങ്ങളിലേക്കെത്താനും എല്ലാ ആശംസകളും നേരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു

എസ്

സിനിമ ടിക്കറ്റ് സിനിമ ടിക്കറ്റുകളിന്മേൽ ഉണ്ടായിരുന്ന വിനോദനികുതി ഈടാക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് നിർത്തിവച്ചതായ പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് തദ്ദേശ ഭരണവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഈ വിഷയത്തിൽ കോടതി യാതൊരു വിധ സ്റ്റേയും ഏർപ്പെടുത്തിയിട്ടില്ല

ടി നിലവിൽ വന്നപ്പോഴാണ് സിനിമ ടിക്കറ്റുകളിന്മേലുണ്ടായിരുന്ന വിനോദനികുതി ഗവൺമെന്റ് ഒഴിവാക്കിയത് എന്നാൽ ഈ വർഷം ജനുവരി ഒന്ന് മുതൽ സിനിമ ടിക്കറ്റുകളിന്മേലുള്ള ജി

ടി നിരക്കുകൾ കുറച്ചപ്പോൾ തദ്ദേശസ്ഥാപനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വിനോദനികുതി ഗവൺമെന്റ് പുനഃസ്ഥാപിച്ചിരുന്നു

സുധാകരൻ നിർദ്ദേശം നൽകി

മഴക്കാലമായതിനാൽ റോഡ് ഫലപ്രദമായി ടാർ ചെയ്യാൻ കഴിയില്ല

ഇപ്പോഴത്തെ ഗവൺമെന്റ് ടോൾ പിരിക്കുന്നതിന് എതിരാണെന്നും മന്ത്രി വൃക്തമാക്കി

ഞായറാഴ്ച ട്രഷറി അടച്ചാൽ അടുത്ത തിങ്കളാഴ്ചയേ തുറക്കുകയുള്ളൂ ഗവൺമെന്റിന് സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിലും ആ പ്രയാസം ഓണത്തെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ ക്ഷേമ പദ്ധതികളുടെ വിതരണം പൂർത്തിയായിട്ടുണ്ടെന്നും ശ്രീ തോമസ് ഐസക് പറഞ്ഞു

ഠൌണിന്റെ പല ഭാഗങ്ങളിലും പൂന്തോട്ടങ്ങൾ നിർമ്മിച്ച സഞ്ചാരികളുടെ മനം കവരുകയാണ് ലക്ഷ്യം

നവകേരളം കർമ്മപദ്ധതി കോ ഓർഡിനേറ്ററിന്റേയും ഗവൺമെന്റിന്റെ വികസന ഉപദേഷ്ടാവിന്റെയും നേതൃത്വത്തിലാണ് ജില്ലാതല യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് ജില്ലാ തല കർമ്മസേനാംഗങ്ങൾ എം പി എം എൽ എ മേയർ മുനിസിപ്പൽ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരും യോഗങ്ങളിൽ പങ്കെടുക്കും

തിരുവോണ ദിന്റത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ്ട്കിയർക്ക് ഓണസദ്യ ഉണ്ടായിരിക്കും

തുടർച്ചയായ മൂന്നാം ദിവസമാണ് സ്വർണ്ണവില ഇടിയുന്നത്

ആലപ്പുഴ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലെർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്